സമർപ്പണം നാളെ അവസാനിക്കും

സർക്കാർ സ്കൂൾ പ്രീപ്രൈമറ്റ് അസ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും മത്സരിക്കാന്ടുവില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രി ദ

അറസ്റ്റിലായ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് വിജിലൻസ് മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകി

ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് ജനശ്രദ്ധ തിരിക്കാനാണെന്ന് കെ

സി സി പ്രസിഡന്റ് അറസ്റ്റ് നാടകമെന്ന് ബി ജെ

സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധൃത മീൻ പിടുത്തക്കാർ ഇനിയൊരറിപ്പുവരെ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർഥിക്കും നിർദേശകനും ഏജന്റിനും മാത്രമേ പരിശോധനാ ഹാളിലേക്കു പ്രവേശനം അനുവദിക്കൂ എന്നു തിരുവനന്തപുരം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫിസർകൂടിയായ കളക്ടർ ഡോ

സ്വാശ്രയ അൺ എയ്ഡ്ഡ് എയ്ഡഡ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി അധ്യാപകർക്കും മീറ്റ് ജീവനക്കാർക്കും തിരഞ്ഞെടു പ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ലെന്ന് കമ്മീഷണർ വ്യക്തമാക്കി

ഹരിത ചട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്ലാസ്റ്റിക് വിമുക്തമാക്കി ഹരിത ചട്ടം പാലിച്ചു നടത്താൻ ് നീർദേശിക്കുന്നു ഹരിതചട്ട പാലനം കൈപ്പുസ്തകത്തിന്റെ തിരുവനന്തപുരം ജില്ലാതല പ്രകാശനം ജില്ലാ കളക്ടർ ഡോ

കൂടുതൽ വിവരങ്ങളുമായി ആകാശപ്പാട്ണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ

ഇബ്രാഹിം കുഞ്ഞിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് വിജിലൻസ് മുവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകി

അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഇന്നു രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് റിമാന്റ് നടപടികൾ പൂർത്തിയാക്കാനായി മൂവാറ്റുപുഴ വിജിലൻസ് ജഡ്ജി അൽപ്പം മുൻപ് ആശുപത്രിയിൽ എത്തി

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

സുരേന്ദ്രൻ പാലാരിവട്ടം അഴിമതികേസിൽ മുൻ മന്ത്രി ഇബ്രാഹിംകുഞ്ഞിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് നാടകമാണെന്ന് ബി ജെ

ഉമ്മൻചാണ്ടി സ്വർണക്കടത്തു കേസിലും മയക്കുമരുന്നു കേസിലും ഉൾപ്പെട്ട് സമനില തെറ്റിയ പിണറായി സർക്കാർ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നതെന്നു മുൻമുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി

ആർ കോവിഡ് ചികിൽസക്കായി പ്ലാസ്മ വിവേചനരഹിതമായി ഉപയോഗിക്കുന്നത് ഉചിതമല്ലെന്ന് ഐ സി

പ്താസ്മ ചികിൽസ സംബന്ധിച്ച് ഐ സി എം ആർ നടത്തിയ പഠനത്തെ തുടർന്നാണ് ഈ നിർദേശം നൽകിയത്

നിലവിൽ ആഴക്കടലിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ദേവസ്വം തെരഞ്ഞെടുപ്പ് തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളിലേക്ക് ഹിന്ദു വിശ്വാസികളായ പട്ടികജാതിപട്ടികവർഗ്ഗ വിഭാഗത്തിൽ നിന്നും ഓരോ അംഗം വീതവും മലബാർ ബോർഡിലേക്ക് ഹിന്ദു വിശ്വാസികളായ രണ്ടു അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നു